പിൻമാറ്റം തുടങ്ങി ഇന്ത്യ ചൈന സൈനിക നയതന്ത്ര ചർച്ചകൾ തുടരും

കോവിഡ് നിർവ്യാപനത്തിന് ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തിയ തിരുവനന്തപുരം നഗരത്തിൽ ഇളവുകൾ അനുവദിച്ചു

ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന സൈനിക നയതന്ത്ര തല ചർച്ചകളെ തുടർന്നാണ് പിൻമാറ്റം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ്ചിയുമായി ഇന്നലെ ടെലഫോണിൽ ചർച്ച നടത്തിയിരുന്നു

ഗാൽവാനിൽ ചൈനയുടെ സൈന്യം സ്ഥാപിച്ച കൂടാരങ്ങളും മറ്റുപകരണങ്ങളും നീക്കം ചെയ്ത് വരുന്നതായി കരസേനാ വൃത്തങ്ങൾ അറിയിച്ചു ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ആവശ്യമാണെന്ന് ഇന്ത്യയും ഒള്ചെനയും പരസ്പര ധാരണയിലെത്തി

എസ് മുൻ നാഷണൽ സെക്യൂരിറ്റി അഡൈസർ ജോൺ ബോൾട്ടൻ സ്വീകാര്യതയുള്ള പരിധി ചൈന ലംഘിക്കുന്നതായും അദ്ദേഹം ദൂരദർശൻ വാർത്തകൾക്കു നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു

കോവിഡ് മൂലം പ്രതിസന്ധിയിലായ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പിന്തുണ നൽകാനാണ് തുക

സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളെ അതിജീവനത്തിന് പിന്തുണയ്ക്കുന്നതിനുള്ള തുടക്കമാണ് സഹായമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു

സാർക്ക് രാജ്യങ്ങളുടെ വീഡിയോ കോൺഫറൻസിങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്

ഒ ഇൻഫെക്ഷൻ പ്രിവൻഷൻ ആന്റ് കൺട്രോൾ മേധാവി ഡോ

കൊറോണ വൈറസിന്റെ വ്യാപനം സംബന്ധിച്ച് വിവിധ ആരോഗ്യ ഏജൻസികളുടെ പഠനങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്

അതിനിടെ രാജ്യത്തെ കോവിഡ് പരിശോധന്ക്കൂളുടെ എണ്ണം ഇന്നലെ ഒരു കോടി പിന്നിട്ടു

കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് മരണങ്ങൾ കോവിഡ് മൂലമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സംസ്ഥാനത്ത് ഉറവിടം അറിയാത്ത കോവിഡ് രോഗികൾ രണ്ടു ശതമാനത്തിൽ താഴെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയനിരക്ക് നാല് ശതമാനമാണ്

ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ അത്യാവശ്യം ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്തിവേണം പ്രവർത്തിക്കാൻ കന്നുകാലി കോഴി ഫാമുകൾ എഫ് സി

ട്രിപ്പിൾ ലോക്ക് ഡൌൺ പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ കുറഞ്ഞത് പത്ത് ജനകീയ ഹോട്ടലുകൾ ആരംഭിക്കാൻ കുടുംബശ്രീക്ക് നിർദ്ദേശം നൽകി

മൂന്നു മുഖ്യവിഷയങ്ങളും ഒരു ഭാഷാ വിഷയവും നിർബന്ധമായി പഠിപ്പിക്കാനാണ് നിർദ്ദേശം കുട്ടികൾക്ക് പുസ്തകത്തിന്റെ ഭാരം കുറയ്ക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണിത് എന്നാൽ രക്ഷിതാക്കളും രാഷ്ട്രീയ പാർട്ടികളും നിർദ്ദേശത്തെ എതിർക്കുകയാണ്

പൊഴിയൂർ മുതൽ കാസർഗോഡ് വരെയുള്ള തീര്ദേശവാസികൾ ജാഗ്രത പാലിക്കണം